ശ്രമത്തിൽ കേരളം എല്ലാ ജില്ലകളിലും റെഡ് അലേർട്ട് പിൻവലിച്ചു

ജലനിരപ്പ് കുറഞ്ഞു രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ

യും റെയിൽവെയും ന് സംസ്ഥാനത്തുടനീളം സർപ്പീസ് പുനരാരംഭിച്ചു

ബോട്ടുടമകളെ അറസ്റ്റ് ചെയ്തു

പ്രകാശ് ഇന്ന് മത്സരിക്കും

പ്രളയക്കെടുതികളും സംസ്ഥാനത്തിന്റെ സാഹചര്യങ്ങളും ഐക്യരാഷ്ട്രസഭ കൃത്യമായി നിരീക്ഷിക്കുകയാണെന്ന് യു എൻ

ടടടടടടടടടടട കേരളം മഴ ഇൻഡ്രോ ഒരു നൂറ്റാണ്ടിനിടെയുണ്ടായ മഹാപ്രള്ളിയുക്കെടുതിയിൽ നിന്ന് കേരളം ഉയർത്തെഴുന്നേല്പിലേക്ക് സ്ംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറഞ്ഞതിനെ തുടർന്ന് പ്രിഎല്ലാ ജില്ലകളിലും റെഡ് അലർട്ട് പിൻവലിച്ചു വിശദാംശങ്ങളുമായി അരുൺകുമാർ

ഇടുക്കി ചെറുതോണി അണക്കെട്ടിന്റെ രണ്ടു ഷട്ടറുകൾ അടച്ചു ചെങ്ങന്നൂരിലും ആലുവയിലും വെള്ളം നന്നായി താഴ്ന്നു തുടങ്ങി പെരിയാറിലും ജലനിരപ്പ് കുറഞ്ഞു റെയിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു വരുന്നു

ദുരന്തത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്ന നെല്ലിയാമ്പതിയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് പലയിടങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നവർ സുരക്ഷിതരാണെന്നും അവരെ എത്രയും പെട്ടെന്നു തന്നെ ക്യാമ്പുകളിലേക്ക് എത്തിക്കുമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു

രക്ഷാപ്രവർത്തനങ്ങൾ ഊർജ്ജിതമായി നടക്കുന്നുണ്ട് എന്നാൽ പമ്പിംഗ് മുടങ്ങിയത് മൂലം കൊച്ചി നഗരത്തിലും സമീപപ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമാണ് വെള്ളം ഇറങ്ങുന്നമുറയ്ക്ക് പമ്പിംഗ് പുനരാരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു

ഇ്റ്ലർക്കുള്ള ഭക്ഷണവും അവശ്യ വസ്തുക്കളും മരുന്നും എത്തിച്ചിട്ടുണ്ടെന്നും ജീവനക്കാരെ പ്രത്യേകം ഡ്യൂട്ടിയിൽ നിയോഗിച്ചിട്ടുണ്ടെന്നും താലൂക്ക് ഓഫിസിൽനിന്ന് അറിയിച്ചു

പേപ്പാറ ഡാമിന്റെ ഒരു ഷട്ടർ അടച്ചു മഴ മാറിനിന്നതോടെ ഡാമുകളിലേക്കുള്ള നീരൊഴുക്കു കുറഞ്ഞതാണു ജലനിരപ്പ് താഴാൻ സഹായകമായത് ഇതോടെ ഡാമിന്റെ ഒരു ഷട്ടർ അടച്ചു രണ്ടു ഷട്ടറുകൾ ഇപ്പോഴും തുറന്നിട്ടുണ്ട്

സുധാകരൻ രക്ഷാപ്രവർത്തനവുമായി സഹകരിക്കുള്ളതെ വിട്ടുനിന്ന അഞ്ചു ബോട്ടുടമകളിൽ നാലുപേരെ മുന്തി ജി സുധാകരന്റെ നിർദേശ പ്രകാരം അറസ്റ്റ്ചെയ്തു

നിർദേശം രക്ഷാപ്രവർത്തനവുമായി സഹകരിക്കാത്ത ബോട്ടുഡ്രൈവർമാരുടെ ലൈസൻസ് അടിയന്തരമായി സസ്പെന്റു ചെയ്യാനും മന്ത്രി നിർദേശിച്ചു ബോട്ടുകളുടെ ഗതാഗതവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ അധികാരിയായ പോർട്ട് സർവയർ ഉത്തരവാദിത്തം ശരിയായി വിനിയോഗിച്ചില്ലെന്ന് മന്ത്രി വിലയിരുത്തി

വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും ആകാശവാണി പ്രതിനിധി ആർ

നിലവിൽ സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടു വരികയാണ്

ആത്ത് ഗ്രാമപഞ്ചായത്തിലെ വെറ്ററിനറി സർജൻമാരുമായി ബന്ധപ്പെട്ട് സേവനം ഉറപ്പാക്കാം